ജലനിരപ്പ് ഉയരുന്നു മഴക്കെടുതി രൂക്ഷം

നടപടികൾ അതത് പഞ്ചായത്തുകൾ നിർവ്വഹിക്കണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ

ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി കാൽപന്ത് കളിയിലെ ലോക ജേതാക്കളെ ഇന്നറിയാം

ജനകീയ ഇടപെടലിലൂടെ ഭൂമി ഏറ്റെടുക്കൽ സാധ്യമാക്കണം സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഏറ്റവും അത്യാന്താപേക്ഷിതമായ പദ്ധതിയാണ് മലയോര ഹൈവേ

കാഞ്ഞങ്ങാട് മലയോര ഹൈവേ കടന്നുപോകുന്ന പ്രസിഡന്റുമാരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ടടട കാലാവസ്ഥ സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത സംസ്ഥാന ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുന്നു കേരള ലക്ഷദ്വീപ് തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധൃതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

മണ്ണാമലയിൽ ഒരു വീടിന് മുകളിൽ മരം വീണ് നാല് പേർക്ക് പരിക്കേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ചില പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാനിർദ്ദേശം നൽകിയിട്ടുണ്ട് അഞ്ചാലുംമൂട് കിളികൊല്ലൂർ ജില്ലയുടെ കിഴക്കൻ മേഖല ഉൾപ്പെടെ പലഭാഗത്തും നിരവധി മരങ്ങൾ ശക്തമായ കാറ്റിൽ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൊല്ലം ചെങ്കോട്ട ദേശീയപാതയിൽ മൂന്നാംകുറ്റിക്ക് സമീപവും ഇളമ്പള്ളൂർ ചിറ്റുമല റൂട്ടിൽ കുണ്ടറ ഫയർ സ്റ്റേഷൻ സമീപവും മരം വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു

പമ്പ അച്ചൻകോവിൽ നദികൾ പലയിടങ്ങളിലും കരകവിഞ്ഞൊഴുകുകയാണ് മണിയാർ മൂഴിയാർ ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു അപ്പർകുട്ടനാടൻ മേഖലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി

മരം വീണ് വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും നിലച്ചു

സന്നദ്ധ സംഘടനകളും മറ്റു വകുപ്പ് തല ഉദ്യോഗസ്ഥർക്കൊപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്

കനത്ത മഴ തുടരുന്നതിനാൽ ബാണാസുര സാഗർ ഡാം സംഭരണ പരിധിയിൽ എത്താറായ സ്ഥിതിയാണുള്ളത് ഈ സാഹചര്യത്തിൽ ഇരു കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ എ

അടിയന്തിര സഹായം എത്തിക്കുന്നതിനായി കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട പ്രതിനിധി ബിജി വർഗ്ഗീസ്

പ്രമുഖ സ്പോർട് ലേഖകൻ എ

രവീന്ദ്രദാസ് ഇരുടീമുകളുടെയും സാധ്യതകൾ വിലയിരുത്തുന്നു

തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധിയിൽ ഇന്ന് മുതൽ അഞ്ച് ദിവസം വൈകുന്നേരങ്ങളിൽ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ മാറ്റുരയ്ക്കും വൈകിട്ട് ഗവർണർ പി സദാശിവം മൺസൂൺ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും ടടടടടടടടടടടടട അക്ഷരശ്രീ നിരക്ഷരരെ കണ്ടെത്തി സാക്ഷരരാക്കുക തുടർവിദ്യാഭ്യാസം നൽകുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സാക്ഷരതാമിഷനും തിരുവനന്തപുരം നഗരസഭയും ചേർന്ന് നടപ്പിലാക്കിവരുന്ന അക്ഷരശ്രീ സാക്ഷരത തുടർവിദ്യാഭ്യാസ പദ്ധതിയുടെ സർവേ നടന്നു

എട്ട് പശുക്കളെയും മൂന്ന് പോത്തുകളെയുമാണ് തുരുത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് രണ്ട് ദിവസത്തെ പ്രയത്നത്തിന് ഒടുവിലാണ് ഇവയെ രക്ഷിച്ചത്